ആദ്യഘട്ടം ഈ അധൃയന വർഷം മുതൽ നടപ്പാക്കും അഹിന്ദി സംസ്ഥാനങ്ങളിൽ മൂന്നാം ഭാഷയായി ഹിന്ദി നിർബന്ധ മായി പഠിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര മാനവശേഷി വികസനമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനക്ഷേമത്തിനുമാണ് മോദി ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്ന് ആഭ്യന്ത്രമന്ത്രി അമിത് ഷാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനവും രേഖപ്പെ ടുത്തിയ വോട്ടുകളും തമ്മിൽ വ്യത്യാസമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ന്യൂസിലന്റിനും ഓസ്ട്രേലി യയ്ക്കും ജയം

ഈ അധ്യയന വർഷം മുതൽ ആദ്യഘട്ടം നടപ്പാവും ഖാദർ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാ നത്തിലാണ് നടപടി

ഇതിനായി പൊതു വിദ്യാ ഭ്യാസ ഡയറക്ടറേറ്റും ഹയർ സെക്കന്റി ഡയറക്ടറേറ്റും വൊക്കേഷണൽ ഹയർ സെക്കന്ററി ഡയറക്ടറേറ്റും ലയിപ്പിച്ച് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എജ്യുക്കേഷൻ നിലവിൽ വന്നു നിലവിലെ പൊതു വിദ്യാഭ്യാസ് ഡയറക്ടർ കെ ജീവൻ ബാബുവിനെ ഇതിന്റെ മേധാവിയായി നിയമിച്ചു പുതിയ സംവിധാനത്തിൽ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാർ വൈസ് പ്രിൻസിപ്പൽമാരായി മാറും

പുതിയ ഭരണ നിർവ്വഹണ സംവിധാനം നടപ്പാക്കുന്നതിന് ചട്ട ങ്ങൾ തയ്യാറാക്കാൻ പൊതു വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഗവൺമെന്റ് ചുമതലപ്പെടുത്തി അഹിന്ദി സംസ്ഥാനങ്ങളിൽ മൂന്നാം ഭാഷയായി ഹിന്ദി നിർബന്ധമായും പഠിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര മാനവശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി

കരട് നിർദ്ദേശത്തിൽ അഭിപ്രായം അറിഞ്ഞ ശേഷമേ തീരുമാനം എടുക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഭാഷയും ആരുടെ മേലും അടിച്ചേൽപ്പിക്കുകയില്ലെന്നും ജാവ്ദേക്കർ അറിയിച്ചു എല്ലാ ഭാഷയും വിക്സിക്കണം എന്ന താണ് ഗവൺമെന്റ് നയമെന്നും ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ദേശീയ വിദ്യാഭ്യാസ് നയത്തിന്റെ ഭാഗമായി തയ്യാ റാക്കിയ കരട് റിപ്പോർട്ടിലാണ് കസ്തൂരിരംഗൻ അധ്യക്ഷനായ സമിതി അഹിന്ദി സംസ്ഥാനങ്ങളിൽ ഹിന്ദി പഠിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ടുവെച്ചത് അതിനിടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ത്രിഭാഷ ഫോർമുല തുടരുന്നതിനെതിരെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി കൾ ശക്തമായി രംഗത്തെത്തി ദ്വിഭാഷ ഫോർമുലയായിരിക്കും സംസ്ഥാനത്ത് പിന്തുടരുകയെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കി ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ഡി

കെ ഒരിക്കലും അനുവ ദിക്കില്ലെന്നും സംസ്ഥാനത്ത് മറ്റൊരു ഭാഷാ പ്രക്ഷോഭത്തിന് കേന്ദ്ര ഗവൺമെന്റ് വഴിവെക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും പാർട്ടി അധ്യക്ഷൻ എം

രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനക്ഷേമത്തിനുമാണ് മോദി ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഈ ലക്ഷ്യത്തിനായി യത്നിക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം ട്വിറ്ററി ൽ അറിയിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി കേരള ഗവർണർ പി സദാ ശിവം ജമ്മു കശ്മീർ ഗവർണർ സ്ത്യപാൽ മാലിക് മഹാ രാഷ്ട്ര ഗവർണർ സി വിദ്യാസാഗർ റാവു തുടങ്ങിയവർ അമി ത്ഷായുമായി വെവ്വേറെ ചർച്ച നടത്തി രാഷ്ട്രപതി ഭരണ ത്തിൽ കഴിയുന്നു ജമ്മു കശ്മീരിലെ നിലവിലെ സ്ഥിതി ആഭ്യ ന്തരമന്ത്രിയെ ധരിപ്പിച്ചതായി ഗവർണർ സത്യപാൽ മാലിക് പറ ഞ്ഞു

ഏത് വിഷയവും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് ഒരുക്കമാണെന്ന് അദ്ദേഹം ബംഗളു രുവിൽ അറിയിച്ചു നരേന്ദ്രമോദിയ്ക്ക് ലഭിച്ച വൻ ജനവിധി കണക്കിലെടുത്ത് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം പ്രതിപക്ഷ പാർട്ടിക ളോട് പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെർഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശത മാനവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖ പ്പെടുത്തിയ വോട്ടുകളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു കമ്മീഷന്റെ വെബ്സൈറ്റിൽ നൽകിയ വോട്ടിംഗ് ശതമാനം പ്രാഥമിക കൃണക്കുകൾ പ്രകാ രമായിരുന്നുവന്നും അന്തിമമായിരുന്നില്ലെന്നും കമ്മീഷൻ വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കി

പി കോൺഗ്രസ്സിൽ ലയിക്കു ക യാ ണെന്ന റിപ്പോർട്ടുകൾ എൻ

പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ തള്ളി

പിയ്ക്ക് സ്വന്തമായ വ്യക്തിത്വമുണ്ടെന്നും അത് കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു

എസ് എൽ

ഡി ലയനം വൈകാതെ യുണ്ടാകുമെന്ന് ജെ

എസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മന്ത്രി കെ

ദേവഗൌഡക്ക് ലയനത്തോട് എതിർപ്പില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു അധ്യക്ഷപദവിയെചൊല്ലി തർക്കമില്ലെന്നും സാങ്കേതിക പ്രശ് നങ്ങൾ മാത്രമാണ് തടസ്സമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേശീയതലത്തിൽ സോഷ്യലിസ്റ്റുകൾ ഒന്നിക്കേണ്ട സമയമാണിതെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു ദേശീയതലത്തിൽ സോഷ്യലിസ്റ്റ് ഏകീകരണത്തിന് ലോക് താന്ത്രിക് ജനതാദൾ മുൻകൈ എടുക്കുമെന്നും ഇതിനായി എം പി വീരേന്ദ്രകുമാറിനെ ചുമതലപ്പെ ടുത്തിയതായും പാർട്ടി നേതാവ് വർഗീസ് ജോർജ്ജ് പറഞ്ഞു കോഴിക്കോട്ട് എൽ

ഡി സംസ്ഥാന കമ്മറ്റിയോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശരത് യാദവ് ആർ

ഡി ടിക്കറ്റിൽ മത്സരിച്ചതോടെ പാർട്ടി അസ്ഥിത്വ പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം വൃക്തമാക്കി ആകാശവാണി മഞ്ചേരി എഫ്

എം എന്ന് പ്രോഗ്രാം മേധാവി ഡി പ്രദീപ് കുമാർ പുറഞ്ഞു ലണ്ടനിൽ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ന്യൂസിലന്റിന് വിജയം

മറ്റൊരു മത്സരത്തിൽ നിലവിലെ ചാമ്പൃന്മാരായ ഓസ്ട്രേ ലിയ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി ഏഴ് വിക്കറ്റിനാണ് ഓസ്ട്രേലിയയുടെ ജയം ഇന്ന് വൈകിട്ട് മൂന്നിന് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ നേരിടും വയനാട് ജില്ലയിൽ ജിയോളജിക്കൽ സർവ്വെ ഓഫ് ഇന്ത്യ നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം വാസയോഗൃമല്ലെന്ന് കണ്ടെ ത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ മഴക്കാലത്തിന് മുമ്പ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് നടപടി കൾ സ്വീകരിക്കണമെന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോ

വേണു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധന സഹായം വിതരണം ചെയ്യുന്ന നടപടികൾ ത്വരിതപ്പെടുത്തണ മെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ പ്രളയാനന്തര പുനരധി വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കല ക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത് വഹിക്കുകയാ യിരുന്നു അദ്ദേഹം എറണാകുളം ജില്ലയിൽ നടപ്പാക്കിവരുന്ന റോഷ്നി പദ്ധ തിയുടെ മൂന്നാംഘട്ടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലുവയിൽ നിർവ്വഹിക്കും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠി ക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളുടെ അക്കാ ദമിക നിലവാർം ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

ഉച്ചകഴിഞ്ഞ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് തെളിവെടുപ്പ്

പാളത്തിൽ തകരാർ കണ്ടതിനെത്തുടർന്ന് കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ ഇന്നലെ വൈകിട്ട് മണിക്കൂറുകളോളം ട്രെയിനു കൾ പിടിച്ചിട്ടു ബേക്കലിനും കാഞ്ഞങ്ങാടിനുമിടയിൽ ചേറ്റു കുണ്ടിന് സമീപം പാളത്തിലാണ് കരിങ്കൽ ചില്ലി ഇളകിയ കുഴി ജീവനക്കാരുടെ ശ്രദ്ധയിൽപെട്ടത് തുകരാർ പരിഹരിക്കാൻ രണ്ട് മണിക്കൂറോളം സമയമെടുത്തു ആദിവാസി ഊരുകളിലെ കാർഷിക സംസ്കാരത്തെപ്പറ്റി പ്രത്യേക പഠനവും ഗവേഷണവും ആവശ്യമാണെന്നും അതി നായി കാർഷിക സർവ്വകലാശാല പ്രത്യേക പഠനകേന്ദ്രം തുട ങ്ങണമെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു കാർഷിക സർവ്വകലാശാലയിൽ ആദിവാസി വിദ്യാർത്ഥി കൾക്കായി സംഘടിപ്പിച്ച ദശദിന കൃഷിശാസ്ത്ര പരിചയ കൃാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്തി

സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടവരല്ല ഭിന്നശേഷിക്കാരെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു

ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങളുടെ വിതരണം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തൊഴിൽ ചെയ്ത് ജീവിതമാർഗ്ഗം ക്ണ്ടെത്താൻ പ്രാവീണ്യം കൂടി വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കണമെന്ന് മന്ത്രി കെ

തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ വിദഗ്ദ്ധ രുടേയും വ്യവസായ പ്രമുഖരുടേയും ശില്പശാല ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നൈപുണ്യം ഇല്ലാ ത്തതുകൊണ്ടാണ് തൊഴിൽ മേഖലയിൽ വിദ്യാർത്ഥികൾ പിന്ത ള്ളപ്പെട്ട് പോകുന്നതെന്നും സ്വന്തമായി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ധൈര്യം അവർക്ക് ആർജ്ജിക്കാനാകുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സാധാര ണക്കാരുടെ മക്കൾക്ക് നിലവാരപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി കെ

സി പ്ലസ്ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മുണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും അനുമോദിക്കുന്നതി നായി ഇന്ന് വിജയോത്സവം സംഘടിപ്പിക്കും രാവിലെ കണ്ണൂർ മൂന്നുപെരിയയിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ മികച്ച ജൈവ വൈവിധൃ ഉദ്യാനങ്ങൾക്ക് സംസ്ഥാനതല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഇടുക്കി കഞ്ഞിക്കുഴി ജി

ആലപ്പുഴ എടത്വാ സെന്റ് മേരീസ് എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനവും മലപ്പുറം കാപ്പിൽ എസ്

പി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി